കോവിഡ് സ്ഥിതിഗതികൾ സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തി

ഗുരുതര രോഗമുള്ളവരും ഗ്ര്ർഭിണികളും കുട്ടികളും വയോധികരും അത്യാവശ്ച കാരൃങ്ങൾക്കല്ലാതെയുള്ള ട്രെയിൻ യാത്ര ഒഴിവാക്കണമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം

തിരുവല്ല സ്വദേശിയാണ് മരണമടഞ്ഞത്

രാജ്യസഭാംഗവും മുൻകേന്ദ്രമന്ത്രിയുമായ എം

വീരേന്ദ്രകുമാറിന് നാടിന്റെ അന്ത്യാജ്ഞലി

ഒരു ദിവസത്തെ ഏറ്റവും വലിയ വർദ്ധനയാണിത്

സി എം

അതേസമയം കൂടുതൽ ഗവൺമെന്റ് സ്ഥകാര്യ ലബോറട്ടറികൾക്ക് പരിശോധനാ അനുമതി നൽകിക്കൊണ്ട് ഐ സി എം ആർ പരിശോധനാ കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു

മുൻപു തന്നെയുള്ള രോഗ കാരണങ്ങളാൽ യാത്രയ്ക്കിടെ മരിക്കുന്നവരുടെ എണ്ണം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിർദ്ദേശം

കുടിയേറ്റ തൊഴിലാളികൾ തീർത്ഥാടകർ വിനോദസഞ്ചാരികൾ വിദ്യാർത്ഥികൾ മറ്റ് സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവർ എന്നിവരെ നാട്ടിലെത്തിക്കാനാണ് റെയിൽവേ പ്രത്യേക ശ്രമിക് ട്രെയിനുകൾ ഓടിക്കുന്നത്

രണ്ടായിരത്തോളം പ്രവാസിക്കൂൾ നാട്ടിൽ മടങ്ങിയെത്തും ദുബായിൽ നിന്ന് ജയ്പൂർ കൊച്ചി കുണ്ണൂർ ഹൈദരാബാദ് കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിട്ടുട്ടളിലേക്കും അബുദാബിയിൽ നിന്ന് ശ്രീനഗറിലേക്കും ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്കും ഓരോ വിമാനങ്ങളുണ്ടാകും മസ്ക്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്കും ദോഹയിൽ നിന്ന് കണ്ണൂരിലേക്കും കുവൈറ്റിൽ നിന്ന് അഹമ്മദാബാദിലേക്കും കോഴിക്കോട്ടേക്കുമാണ് മറ്റ് സർവ്വീസുകൾ

എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപുമായി അടുത്തിടെ സംഭാഷണമൊന്നും നടത്തിയിട്ടില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി ചൈനയുമായുള്ള അതിർത്തി തർക്കത്തിൽ മധ്യസ്ഥ സംഭാഷണം നടത്താൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിലൂടെ അറിയിച്ചതായി ട്രംപ് പറഞ്ഞിരുന്നു

മുംബൈ ചെന്നൈ ഡൽഹി അഹമ്മദാബാദ് താനെ പൂനെ ഹൈദരാബാദ് കൊൽക്കെട്ടിത്ത ഇൻഡോർ ജയ്പൂർ ജോധ്പൂർ ചെങ്കൽപ്പേട്ട് തിരുവള്ളൂർ എന്നീവയാണ് ഈ നഗരങ്ങൾ ഇവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തു കോവിഡ് വ്യാപനം നേരിടുന്നതിന് നഗരസഭകൾ സ്വീകരിച്ച നടപ്പൂടികൾ യോഗത്തിൽ വിലയിരുത്തി

അബുദാബിയിൽ നിന്നും നാട്ടിലെത്തി നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു അദ്ദേഹം

മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറും പി ടി ഐ മുൻചെയർമാനും ഐ എൻ എസ് പ്രസിഡന്റുമായിരുന്നു

ന്ടിരവധി സാഹിതൃകൃതികളുടെ കർത്താവായു അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയെത്തീയിട്ടുണ്ട്

വീരേന്ദ്രകുമാറിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം അറിയിച്ചു യഥാർത്ഥ ദേശസ്നേഹിയെയും മഹാനായ നേതാവിനെയുമാണ് രാജ്യത്തിന് നഷ്ടമായതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു സാധാരണക്കാർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമുയർത്തി പ്രഗത്ഭനായ പാർലമെന്റേറിയനായിരുന്നു എം

രോഗബാധയിൽ അമേരിക്കയാണ് മുന്നിൽ

ഒരു ലക്ഷത്തിലേറെ പേർ മരിച്ചു രോഗബാധയിൽ ബ്രസീലാണ് രണ്ടാമത്

ലിബിയ് പ്പിച്ച് യൂറോപ്പിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്ന്തിനിടെയാണ് ബംഗ്ലാദേശി പൌരന്മാരെ പണത്തിനുവേണ്ടി ലീബിയൻ അധോലോകസംഘം തടവിലാക്കിയത്